നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രെണ്ട് ഓഫ് ബോഡോലാന്റ് വിഭാഗങ്ങളുമായി കേന്ദ്ര ഗവൺമെന്റ് ചരിത്രപരമായ കരാറിൽ ഒപ്പുവച്ചു

രാജ്യത്തെ വിഭജന ശ്ക്തികൾക്ക് ആം ആദ്മി പാർട്ടി പിന്തുണ നൽകുന്നുവ്പെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ആരോപ്പിച്ചു

നിയമസഭാ കൌൺസിൽ പിരിച്ചുവിടാൻ ആന്ധ്രാപ്രദേശ് മന്ത്രിസഭ പ്രമേയം പാസാക്കി

കൊറോണ വൈറസ് ബാധയുടെ പശ്ചാത്തലത്തിൽ ചൈനയിലെ വുഹാനിലുള്ള ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു

ആഭ്യന്തരമന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി സത്യേന്ദ്ര ഗാർഹ് അസം ചീഫ് സെക്രട്ടറി കുമാർ സഞ്ജയ് കൃഷ്ണ നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഓഫ് ബോഡോലാന്റിന്റെ ഒമ്പത് വിഭാഗങ്ങളുടെ നേതൃത്വം എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചിട്ടുള്ളത് അസമിലെ ബോഡോ ഗ്രോതവർഗ്ഗക്കാർക്ക് രാഷ്ട്രീയ അവകാശങ്ങളും സാമ്പത്തിക പാക്കേജും ധാരണാപത്രത്തിൽ ഉണ്ട്

ഇന്ന് ഒപ്പുവച്ച ത്രികക്ഷി കരാർ ബോഡോകളുടെ ഉന്നതമായ സംസ്കാരം സംരക്ഷിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റ് ചെയ്തു

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

പുനരുജ്ജീവിപ്പിക്കാൻ സ്ഥകാര്യ മേഖലയിൽ നിന്നും മൂലധനം ആവശ്യമുണ്ടെന്ന് കേന്ദ്ര വ്യോമയാനം മിന്തി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ഇന്ത്യാ വിരുദ്ധ മുദ്രാവാക്യം മുഴക്കിയവർക്കെതിരെ നടപടിയെടുക്കാൻ പൊലീസിന് ഡൽഹി ഗവൺമെന്റ് അനുമതി നൽകിയില്ലെന്ന് ശ്രീ

കേന്ദ്ര ഗവൺമെന്റിന്റെ ആയുഷ്മാൻ ഭാരത് പോലുള്ള പദ്ധതികൾ ഡൽഹിയിൽ നടപ്പാക്കുന്നില്ലെന്നും റിതാലയിൽ പൊതു സമ്മേളനത്തിൽ അദ്ദേഹം ആരോപിച്ചു അതിനിടെ ആം ആദ്മി പാർട്ടി കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഭവാന നരേല എന്നിവിടങ്ങളിൽ റോഡ് ഷോ നടത്തി വോട്ട് അഭ്യർത്ഥിച്ചു

സമാനമായ പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച ശേഷം തുടർനടപടികൾക്കായി കേന്ദ്രത്തിന് അയക്കും

ആർ

രാജ്യത്തെ വിഭജിക്കാൻ ശ്രമിക്കുന്നവർ ഷഹീൻബാഗിൽ അഭയം തേടിയിരിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ന്യൂഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി

ശിവ്സേന നേതാവ് കംലക്കർ ജംസണ്ടേക്കറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട വിചാരണ കോടതിയാണ് ഗാവ്ലിക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ ്വിധിച്ചത്

അടുത്ത മാസം ഒന്നിന് തൂക്കില്റ്റൊനിരിക്കുന്ന സാഹചര്യത്തിൽ പ്രതിയുടെ അപേക്ഷ ഗൌരവപൂർവം ്പരിഗണിക്കേണ്ടതുണ്ടെന്ന് ജസ്റ്റിസുമാരായ ബി

ഗവായും സൂര്യകാന്തും അടങ്ങിയ ബഞ്ച് അഭിപ്രായപ്പെട്ടു

കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി ് അഞ്ച് സംസ്ഥാനങ്ങളിലെ ചീഫ് സെക്രട്ടറിമാർ ഡി ജി

മാർ എന്നിവരുമായും അയൽ രാജ്യമായ നേപ്പാളിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായും വീഡിയോ കോൺഫറൻസിംഗിലൂടെ ചർച്ച നടത്തി

നിലവിൽ വുഹാനിലെ സ്ഥിതിഗതികൾ രൂക്ഷമാണെന്ന് സംസ്ഥാനത്ത് നിന്നുള്ള വിദ്യാർത്ഥികളുടെ ബ്ന്ധൂക്കളിൽ നിന്നും വിവരങ്ങൾ ലഭിച്ചതായി അദ്ദേഹം കത്തിൽ പുറയുന്നു വുഹാനിലെ ഇന്ത്യൻ വംശജർക്ക് പ്രത്യേകിച്ചും ഷൂഹാൻ യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് അടിയ്ത്ത്ർ സഹായം ലഭ്യമാക്കുന്നതിനും സാഹചര്യങ്ങൾ നടപടി സ്വീകരിക്കണമെന്നാവശൃപ്പെട്ട് താൻ വിദേശകാര്യ മന്ത്രാലയത്തിന് നേരത്തെ കത്ത് എഴുതിയിട്ടുണ്ട്

വുഹാനിൽ നിന്ന് തിരികെ എത്തുന്ന ഇന്ത്യക്കാർക്ക് ആരോഗ്യ പരിചരണം നൽകുന്നതിനായി ആരോഗ്യ വിദഗ്ധരുടെ സേവനം സംസ്ഥാനത്ത് നിന്ന് ലഭ്യമാക്കാൻ തങ്ങൾ സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു

ഇതുമായി ബന്ധപ്പെട്ട് യാത്രക്കാരെ നിരീക്ഷിക്കുന്നതിന് കൊച്ചി വിമാനത്താവളത്തിൽ ഏർപ്പെടുത്തിയിട്ടുള്ള സംവിധാനത്തിൽ അവർ സംതൃപ്തി രേഖപ്പെടുത്തി

ഗംഗ നദി ഉത്തർപ്രദേശിൽ പ്രവേശിക്കുന്ന ബിജ്നോറിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ത്രിവേന്ദ്ര് സിംഗ് റാവത് കേന്ദ്രമന്ത്രി സഞ്ജീവ് ബല്യൻ എന്നിവർ ചേർന്നാണ് ഉത്തർപ്രദേശിൽ നിന്നും ഗംഗ നദി ബിഹാറിലേക്ക് കടക്കുന്ന കിഴക്കൻ ഉത്തർപ്രദേശിലെ ബല്ലിയയിൽ നിന്നും യാത്രയുടെ മറ്റൊരു ഭാഗത്തിന് ഗവർണർ ആനന്ദിബെൻ പട്ടേലും കേന്ദ്രമന്ത്രി മഹേന്ദ്രനാഥ് പാണ്ഡേയും ബിഹാർ ഉപമുഖ്യമന്ത്രി സുശീൽ മോദിയും ചേർന്ന് തുടക്കമിട്ടു ഗംഗ നദിക്കരയിൽ താമസിക്കുന്നവർ ഭാഗ്യമുള്ളവരാണെന്ന് ബല്ലിയയിൽ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് കൊണ്ട് സംസ്ഥാന ഗവർണർ ആനന്ദിബെൻ പട്ടേൽ പറഞ്ഞു രാജ്യത്തെ നദികൾ ശുദ്ധീകരിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടപടികൾ സ്വീകരിച്ച് വരികയാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി ബിജനോർ ബല്ലിയ എന്നിവിടങ്ങളിൽ മന്ത്രോച്ചാരണങ്ങളും ഗംഗാ ആരതിയും നടത്തിയാണ് യാത്ര ആരംഭിച്ചത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരു സഭകളുടെയും സുഗമമായ പ്രവർത്തനം ലക്ഷ്യമിട്ടാണിത് വ്യാഴാഴ്ച വൈകുന്നേരം സ്പീക്കർ ഓം ബിർളയും സർവ്വകക്ഷി യോഗം വിളിച്ചിട്ടുണ്ട്

പൂർണമായും ഇന്ത്യൻ പാർലമെന്റിന്റെയും ഗവൺമെന്റിന്റെയും അധികാര പരിധിയിലുള്ള വിഷയങ്ങളിൽ വിദേശ ശക്തികൾ ഇടപെടുന്നതിനെ അദ്ദേഹം അപലപിച്ചു

ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന യോഗം വീഡിയോ കോൺഫറൻസിംഗിലൂടെയായിരിക്കും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യുക

ജെ

പദ്മ പുരസ്കാരത്തിന് അദ്നൻ സാമി അർഹനാണെന്ന് ബി ജെ